സ്പെഷ്യാലിറ്റി ആശുപത്രിയാക്കാന്റാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് ആരോഗ്യമന്ത്രിക്ക് കെ ശൈലജ

വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ തുറക്കുന്നത് പരിഗണിക്കുമെന്ന് മന്ത്രി കടകംപള്ളി സ്പൂര്യേന്ദ്ൻ

വരുന്നതായി കേന്ദ്ര ആരോഗൃ മന്ത്രാലയം

മാർഗ്ഗനിർദ്ദേശങ്ങൾ കേന്ദ്രം പുറപ്പെടുവിച്ചു

എൽ ക്രിക്കറ്റിൽ മുംബൈ ഇന്ത്യൻസ് ഇന്ന് രാജസ്ഥാൻ റോയൽസിനെ നേരിടും

രോഗ വ്യാപനം പിടിച്ചുനിർത്താനായതായി മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു

നേമം സ്വദേശി ശ്രീധരൻ ആന്റണി മോറൈസ് ഗിരിജ ്ഷാജി താജുദ്ദീൻ ശ്രീനിവാസൻ വിജയബാബു ശങ്കര സുബ്രഹ്മണ്യ അയ്യർ കൊല്ലം സ്വദേശികളായ കബീർ സുബൈദ പ്രഭാവതി അമ്മ ശ്രീകുമാർ ചാൾസ് ആലപ്പുഴ സ്വദേശി സത്യൻ കോട്ടയം സ്വദേശികളായ സാബു ജേക്കബ് രാജു കുര്യൻ ശ്യാമള ഈതേരി ഫാത്തിമ സെയ്ദലവി ഇബ്രാഹീം കുട്ടി കണ്ണൂർ സ്വദേശകളായ ബാലകൃഷ്ണൻ പി രവീന്ദ്രൻ കാസർഗോഡ് സ്വദേശി രവീന്ദ്രൻ എന്നിവരാണ് മരണമടഞ്ഞത്

ശേഷിക്കുന്നവയുടെ പ്രവർത്തനങ്ങൾ അതിവേഗ്കാി പൊതുജനാരോഗൃ രംഗത്ത് മികച്ചു നേട്ടങ്ങൾ ആർജിക്കാൻ ആർദ്രം മിഷന് സാധിച്ചെന്നും മുഖ്യമീന്ത്രി പറഞ്ഞു

തിലോത്തമൻ കോവിഡ് കാലത്തെ വെല്ലുവിളികൾ അതിജീവിച്ച് പൊതുവിതരണ രംഗത്ത് സപ്ലൈക്കോ നടത്തിയത് മാതൃകാപരമായ പ്രവർത്തനങ്ങളാണെന്ന് മന്ത്രി പി

ഹരിപ്പാട് ആരംഭിച്ച സപ്ലൈകോ സൂപ്പർ മാർക്കറ്റ് വീഡിയോ കോൺഫറൻസിലൂടെ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി പ്രതികൂല സാഹചര്യങ്ങൾ പലതും അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടും അരിയുടെ വില പിടിച്ചു നിർത്താൻ സർക്കാരിന് സാധിച്ചു സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ വഴി ജനങ്ങൾക്ക് മെച്ചപ്പെട്ട സേവനങ്ങൾ ഉറപ്പ് വരുത്താൻ കഴിഞ്ഞതായും മന്ത്രി പറഞ്ഞു

ടിക്കറ്റ് ക്റൌണ്ട്റിലെ തിരക്ക് ഒഴിവാക്കാനായി ഓൺലൈൻ ബുക്കിംഗ് സ്ഫ്റ്റ്റ്യാനം അവലംബിക്കാനും കേന്ദ്രമന്ത്രി പ്രകാശ് ജാവ്ദേക്കർ നീർദ്ദേശം നൽകി

നിയന്ത്രണങ്ങൾ നടപ്പാക്കാൻ ബുദ്ധിമുട്ടുള്ള ബീച്ചുകൾ തുടങ്ങിയ ഇടങ്ങളിൽ നിയന്ത്രണം തുടരും

പി സൂര്യേന്ദ്രൻ ശബരിമല ദർശനത്തിന് കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുള്ള മാർഗ്ഗനിർദ്ദേശങ്ങൾ വിദഗ്ദ്ധ സമിതി സർക്കാരിന് സമർപ്പിച്ചതായി കടകംപള്ളി സുരേന്ദ്രൻ

നിലയ്ക്കലിലെ പ്രവേശന പോയിന്റിൽ വീണ്ടും പരിശോധന നടത്തിയശേഷമാകും പ്രവേശനം

എന്നാൽ തന്ത്രിയുടെ അഭിപ്രായം അറിഞ്ഞശേഷമെ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമുണ്ടാകു വിദഗ്ദ്ധ സമിതിയുമായി ഇതു സംബന്ധിച്ച് മുഖ്യമന്ത്രി നാളെ ചർച്ച നടത്തും

എൽ ക്രിക്കറ്റിൽ ുള്ന്ന് മുംബൈ ഇന്ത്യൻസും രാജസ്ഥാൻ റോയൽസും ഏറ്റുമുട്ടും

ബ്രിട്ടീഷ് പൌരൻ റോജർ പെന്റോസ് ജർമ്മനിയുടെ ഐയ്ൻഹാർഡ് കെൻസിൽ അമേരിക്കയുടെ ആൻഡ്രിയ ഗെസ് എന്നിവർ പുരസ്കാരം പങ്കിട്ടു തമോർത്തത്തെക്കുറിച്ചുള്ള പഠനത്തിനാണ് പെന്റോസിന് പുരസ്കാരം ലഭിച്ചത്

ഐ

ദുബായ് പോലീസാണ് ഇവരെ അറസ്റ്റ് ചെയ്തത് ഇവരെ ചോദ്യം ചെയ്തു വരികയാണെന്ന് എൻ

എ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറഞ്ഞു